ശേഷിക്കുന്ന രണ്ട് ഘട്ടങ്ങളിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിൽ വോട്ട് തേടാൻ കോൺഗ്രസ് തയാറാകുമോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി രക്തസാക്ഷിയെയാണ് അപമാനിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കണ്ണൂർ പുതിയങ്ങാടിയിൽ കള്ളവോട്ട് ചെയ്തെന്ന പരാതിയിൽ മൂന്ന് പേർക്കെതിരെ കേസെടുത്തു സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ബയോ മെട്രിക് പഞ്ചിംഗ് സംവിധാനം ഏർപ്പെടുത്തും ഐപിഎൽ ക്രിക്കറ്റിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം

ജമ്മുകശ്മീരിലെ അനന്തനാഗ് ലോക്സഭാ മണ്ഡല ത്തിൽ മൂന്ന് ശതമാനത്തിൽ താഴെയാണ് പോളിങ്ങ്

ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന രണ്ട് ഘട്ടങ്ങളിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിൽ വോട്ട് തേടാൻ കോൺഗ്രസ് തയാറാകുമോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദി ച്ചു ബോഫോസ് അഴിമതിയെ കുറിച്ച് ചർച്ച വേണമെന്ന് ഝാർഖ ണ്ഡിലെ ചായ്ബാസയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മോദി ആവ ശ്യപ്പെട്ടു കൂടുംബ ഭരണത്തിലെ ഒരംഗത്തെ ഒന്നാം നമ്പർ അഴിമതിക്കാര നെന്ന് കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞപ്പോൾ ചിലർ ഉച്ചത്തിൽ കര യാൻ തുടങ്ങിയിട്ടുണ്ടെന്നും കരച്ചിലിന് ശക്തി കൂടുന്നതിനനുസരിച്ച് പുതിയ തലമുറ പഴയ സത്യങ്ങൾ മനസിലാക്കുമെന്നും മോദി പറ ഞ്ഞു രാജീവ് ഗാന്ധിയെ അപമാനിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്ത സാക്ഷിയെയാണ് അപമാനിച്ചതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു

വെറുക്കുന്നവരെ സ്നേഹത്തിലൂടെ മാത്രമേ തോൽപ്പിക്കാനാവു എന്നും മുതിർന്ന ഇന്ത്യൻ നേതാക്കളെ അപമാനിക്കുന്ന നരേന്ദ്രമോ ദിക്ക് ജനം ഉചിതമായ മറുപടി നൽകുമെന്നും രാഹുൽ പറഞ്ഞു കോൺഗ്രസ് നൽകിയ രണ്ട് പെരുമാറ്റച്ചട്ട ലംഘന പരാതികളിൽ കൂടി പ്രധാനമന്ത്രി നരേന്ദമോദിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്സീൻചിറ്റ് നൽകി

ബലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയ നായകർക്ക് വോട്ട് നൽകണമെന്ന് കഴിഞ്ഞ മാസം ഒൻപതിന് കർണാടകയിലെ ചിത്ര ദുർഗയിൽ നടത്തിയ പ്രസംഗത്തിലും പെരുമാറ്റിച്ചട്ട ലംഘനം ഉണ്ടാ യിട്ടില്ലെന്ന് കമ്മീഷൻ അറിയിച്ചു അതിനിടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഒന്നാം നമ്പർ അഴി മതിക്കാരനാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശനത്തി നെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീ ഷനെ സമീപിച്ചു ഇന്ത്യൻ പാരമ്പര്യത്തിന് എതിരായതും നിയമവി രുദ്ധവുമായ പരാമർശത്തിന് മോദിക്കെതിരെ ഉടൻ നടപടിയെടുക്ക ണമെന്ന് കോൺഗ്രസ് നേതാക്കളായ അഭിഷേക് സിഗ്വി രാജീവ് ശുക്സ സൽമാൻ ഗുർഷിത് എന്നിവർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കണ്ട് ആവശ്യപ്പെട്ടു ഉത്തർപ്രദേശിൽ ശനിയാഴ്ച്ച നടത്തിയ റാലിയിലാണ് രാജീവ് ഗാന്ധിയെ നരേന്ദ്രമോദി ഒന്നാം നമ്പർ അഴിമതിക്കാരനായി വിശേ ഷിപ്പിച്ചത് കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കണ്ണൂർ പുതിയങ്ങാ ടിയിൽ കള്ളവോട്ട് ചെയ്തെന്ന പരാതിയിൽ മൂന്ന് പേർക്കെതിരെ പഴയങ്ങാടി പൊലീസ് കേസെടുത്തു മുസ്ലീം ലീഗ് പ്രവർത്തക രായ എസ്

മുഹമ്മദ് ഫായിസ് കെ

അബ്ദുൾ സമദ് കെ

മുഹമ്മദ് എന്നിവർക്കെതിരെയാണ് കേസ് എടുത്തത്

സജിത് ബാബു മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി

വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് കള്ള വോട്ട് നടന്നെന്ന് കണ്ടെത്തിയാൽ തുടർനടപടി സ്വീകരിക്കുമെന്ന് കലക്ടർ അറിയിച്ചു കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സർവ്വകക്ഷി സംഘം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം നൽകിയ കത്തിലെ വിശദാംശങ്ങൾ പുറത്തു വിടാൻ മുഖ്യമന്ത്രി തയാറാകണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻപിള്ള ആവശ്യ പ്പെട്ടു

ദേശീയ പാതാ വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി തോമസ് ഐസക് ഉന്നയിച്ച ആരോപണങ്ങളോട് കോഴിക്കോട്ട് പ്രതികരിക്കു കയായിരുന്നു അദ്ദേഹം എടപ്പള്ളി മൂത്തകുന്നം ഭാഗത്ത് പ്രളയക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്നവരാണെന്നും ഈ ഭാഗത്ത് താൽക്കാലികമായി ഭൂമി യേറ്റെടുക്കൽ നിർത്തിവെക്കണമെന്നുമായിരുന്നു കത്തിൽ സൂചിപ്പി ച്ചത് തന്നെ വർഗ ശത്രുവായി പ്രഖ്യാപിക്കണമെന്ന അഭിപ്രായം സിപിഐഎമ്മിന്റെ അപചയമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച്ച നടത്തി

രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്നലെ വൈകീ ട്ടാണ് ചന്ദ്രശേഖർ റാവു തിരുവനന്തപുരത്തെത്തിയത് സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ബയോ മെട്രിക് പഞ്ചിങ്ങ് സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് പൊതു ഭരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു സിവിൽ സ്റ്റേഷനുകളിൽ മൂന്ന് മാസത്തിനകവും എല്ലാ വകുപ്പുകളിലും ആറു മാസത്തിനകവും സ്പാർക്ക് ബന്ധിത പഞ്ചിങ്ങ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഉത്തരവിൽ പറയുന്നു സ്പാർക്ക് മുഖേന ശമ്പളം ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന ങ്ങളും ആധാർ അധിഷ്ഠിത പഞ്ചിങ്ങ് സംവിധാനം സ്ഥാപിക്കണം സംസ്ഥാന വ്യാപകമായി പഞ്ചിങ്ങ് മെഷിൻ സ്ഥാപിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്താൻ ഐടി മിഷനെ ചുമതലപ്പെടുത്തി അഭിഭാഷകനായ വിജു അബ്രഹാമിനെ കേരളാ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി നേതൃത്വം നൽകുന്ന മൂന്നംഗ സുപ്രീം കോടതികൊളീജിയം ശുപാർശ ചെയ്തു ഡൽഹി ഹൈക്കോടതിയിൽ സാകേത് ജില്ലാ സെഷൻസ് ജഡ്ജി ആശാ മേനോൻ ഉൾപ്പെടെ നാല് ജൂഡീഷ്യൽ ഓഫീസർമാരേയും ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിൽ ഒരു ജൂഡീ ഷ്യൽ ഓഫീസറെയും ജഡ്ജിമാരായി നിയമിക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട്

ചെന്നൈയിൽ നടക്കുന്ന ഒന്നാം കാളി ഫയർ മത്സരത്തിൽ പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനക്കാ രായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്ങ്സും ഏറ്റുമുട്ടും ഐപിഎൽ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ കിരീടം നേടിയ ടീമുകളാണ് ചെന്നൈ സൂപ്പർകിങ്ങ്സും മുംബൈ ഇന്ത്യൻസും

ഇന്ന് ജയിക്കുന്നവർ ഞായറാഴ്ച്ച നട ക്കുന്ന ഫൈനലിൽ കളിക്കാൻ യോഗ്യത നേടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സമാപിച്ച സംസ്ഥാന ജൂനിയർ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകൂട്ടികളിൽ തിരു വനന്തപുരവും പെൺകുട്ടികളിൽ മലപ്പുറവും ജേതാക്കളായി

എട്ട് ഘടക ക്ഷേത്രങ്ങളിലും ഇതോടെ പൂരത്തിന് കൊടിയേറും

ശ്വാസകോശ സം ബന്ധമായ അസുഖത്തെതുടർന്ന് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു എര ഞ്ഞോളി മൂസ അന്തരിച്ചത്

എരഞ്ഞോളി മൂസ യുടെ നിര്യാണത്തിൽ അനുശോചിച്ച് തലശ്ശേരി ടൌണിൽ ഇന്ന് ഉ ച്ചുവരെ ഹർത്താൽ ആചരിക്കും

കേരളത്തിലെ ഏക മുസ്ലീം രാജവംശമായ അറക്കൽ രാജവം ശത്തിന്റെ നാൽപതാമത് സുൽത്താനയായി ആദിരാജ മറിയുമ്മ ചെ റിയബീകുഞ്ഞി ബീവി നാളെ സ്ഥാനമേൽക്കും വൈകുന്നേരം ആ റുമണിക്ക് രാജകീയ പാരമ്പര്യമനുസരിച്ചായിരിക്കും സ്ഥാനാരോഹ ണ ചടങ്ങ് നടക്കുക ആദിരാജ ഫാത്തിമ മുത്ത് ബീവിയുടെ നി ര്യാണത്തെ തുടർന്നാണ് പുതിയ സുൽത്താന അധികാരമേൽക്കു ന്നത് പശ്ചിമ കൊച്ചിയിലെ ജലഗതാഗതം കാര്യക്ഷമമാക്കാൻ അടിയ ന്തര നടപടി വേണമെന്ന് പശ്ചിമകൊച്ചി പാസഞ്ചേഴ്സ് അസോസി യേഷൻ ആവശ്യപ്പെട്ടു മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി യുദ്ധകാലാടിസ്ഥാ നത്തിൽ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും എറണാകുളം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി റൂട്ടിൽ രണ്ടു ബോട്ടുകൾ കൂടി അനുവദിക്കണ മെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു പാറമേക്കാവ് ദേവസ്വം മുൻ പ്രസിഡന്റും കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ കെ കൃഷ്ണൻകുട്ടി മേനോൻ നിര്യാത നായി

കലാമണ്ഡലം ഭരണ സമിതി അംഗവും നാലപ്പാടൻ സ്മാരക സമിതി ജനറൽ കൺവീനറുമായിരുന്ന അശോകൻ നാലപ്പാട്ട് തൃശൂർ പുന്നയൂർക്കുളത്ത് നിര്യാതനായി

കെപിസിസി വിചാർ വിഭാഗ് തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു സംസ്കാരം വൈകീട്ട് നാലിന് പുന്നയൂർകുളം പഞ്ചായത്ത് ശ്മശാനത്തിൽ നട ക്കും പത്തനംതിട്ടയിലെ അടൂർ പറക്കോട്ട് സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു

തുകയുടെ ഒൻപതുശതമാനം പലിശയും കോടതിച്ചെലവും നൽകണം കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറ ങ്ങി

ആദിവാസി പുരനധിവാസ മിഷൻ ഓഫീസിന് സമീപം നിർ ത്തിയിട്ട വാഹനങ്ങൾ നശിപ്പിച്ചു കാർഷിക വിളകൾക്കും കനത്ത നാശമുണ്ടാക്കിയിട്ടുണ്ട് ഭവനരഹിതർക്കു പാർപ്പിടം ഒരുക്കുന്ന ലൈഫ് മിഷൻ ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് ലൈഫ് മിഷൻ സിഇഒ യു

ചെറായി വൈപ്പിൻ വൈദ്യുത പദ്ധതി പ്രകൃതിയെ സംരക്ഷിച്ച് നടപ്പാക്കു മെന്ന് എറണാകുളം ജില്ലാ കലക്ടർ മുഹമ്മദ്